നിയന്ത്രണങ്ങൾ ശക്തമാക്കി ്കേരളം വ്യാപനം തടയാൻ സംസ്ഥാർഗം സജ്ജമെന്ന് മുഖ്യമന്ത്രി

കൊൽക്കത്തയ്ക്കെതിരെ ചെന്നൈയ്ക്ക് വിജയം ഇന്ന് ബാംഗ്ലൂർ രാജസ്ഥാൻ പോരാട്ടം

കേരളം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കർണ്ണാടക ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ രോഗികൾ ചികിത്സയിലുണ്ട് രോഗവ്യാപനം കൂടുതലായ പ്രദേശങ്ങളിലാണ് സർക്കാർ പ്രധാനമായും ശ്രദ്ധ ചെലുത്തുന്നതെന്നും കേന്ദ്ര മന്ത്രാലയം വ്യക്തമാക്കി കോവിഡ് വ്യാപനം തടയുന്നതിനായി കേന്ദ്രവും സംസ്ഥാനങ്ങളും മികച്ച ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് കേന്ദ്ര ആരോഗൃ സെക്രട്ടറി രാജേഷ് ഭൂഷൺ പറഞ്ഞു

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ തീരുമാനമായത് രണ്ടാം തരംഗം നേരിടാൻ സംസ്ഥാനം എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വൃക്തമാക്കി

സർക്കാർ ഓഫീസുകളിൽ പകുതി പേർ മാത്രം ജോലിക്കെത്തുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തും വിദ്യാഭ്യാസം ഓൺലൈനിലൂടെ മാത്രമാക്കാനും തീരുമാനമായി വാക്സിൻ വിതരണത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തും രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കും സംസ്ഥാനത്ത് ഓക്സിജൻ ദൌർലഭ്യമില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു വരുന്ന ശനിയാഴ്ച സർക്കാർ ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും

അതിഥി തൊഴിലാളികൾക്ക് അതതു സ്ഥലങ്ങളിൽ വാക്സിനേഷൻ നൽകണം തൊഴിലിന് തടസം വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവർക്ക് ഭക്ഷണം എത്തിക്കണം കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ടാം തരംഗം രൂക്ഷമായതോടെ പരിശോധനകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് തൃശൂർ കാസർഗോഡ് ജില്ലകളിലാണ് രോഗബ്യൂട്ട്പ്ന നിരക്ക് കൂടുതൽ

സംസ്ഥാനത്തെ വാക്സിൻ ദൌർലഭൃം സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും അതിൽ രാഷ്ട്രീയമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ പൊതുവായ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടാം തരംഗത്തിൽ കോവിഡ് വ്യാപനം രക്ഷമായി തുടരുമ്പോൾ വാക്സീൻ വില വർധിപ്പിച്ച് സംസ്ഥാനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളി വിടരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോവിഡ് രണ്ടാംതരംഗം തീവ്രതയോടെ രാജ്യമാകെ വ്യാപിക്കുമ്പോൾ പരമാവധി വാക്സിൻ ജനങ്ങളിലെത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് എന്നാൽ സംസ്ഥാനങ്ങൾക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യത സമ്മാനിക്കുന്നതാണ് പുതിയ വാക്സിൻ നയമെന്നും അദ്ദേഹം പറഞ്ഞു

വാക്സിൻ വിതരണ കേന്ദ്രങ്ങൾ സാമൂഹ്യവ്യാപന ഇടങ്ങളാകുന്ന സ്ഥിതിയുള്ളതിനാൽ ലഭ്യമാർയ വാക്സിന്റെ അളവനുസരിച്ച് വേണം ഗുണഭോക്തിക്കുള്ള നിശ്ചയിക്കാനെന്നും അടുത്ത നാലുദിവസത്തിനകം ആറ്റർലക്ഷം ഡോസ് വാക്സിൻ കൂടി കേരളത്തിലെത്തുമെന്നും ്അദ്ദേഹം പറഞ്ഞു

ഇന്നു മുതൽ ഒന്നാമത്തേയും രണ്ടാമത്തേയും ഡോസുകൾ മുൻകൂട്ടിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി മാത്രമായിരിക്കും ലഭ്യമാകുക

അതാത് വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെ കോവിഷീൽഡിന്റേയും കോവാക ്സിന്റേയും ലഭ്യത സംബന്ധിച്ച് പൊതുജനങ്ങളെ അറിയിക്കുകയും വേണം

നമ്മുടെ ഭൂമിയെ വീണ്ടെടുക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ഭൂമിയെ കൂടുതൽ വൃത്തിയുള്ളതും സുസ്ഥിരവുമാക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഐകൃരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ടിറ്ററിൽ കുറിച്ചു

കോവിഡ് സാഹചര്യം കൃണ്ണക്കിലെടുത്ത് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

തെരഞ്ഞെടുപ്പ് സുഗമമായും സുതാര്യമായും നടത്താനാണ് ഈ നടപടികളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

എസ് നയിക്കുന്ന കാലാവസ്ഥ വൃതിയാന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും രണ്ട് ദിവസം നീളുന്ന ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ക്ഷണത്തെ തുടർന്നാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഉൾപ്പെടെ നാൽപ്പതോളം ലോകനേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് കാലാവസ്ഥാ വൃതിയാനം സംബന്ധിച്ച് ലോകനേതാക്കൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ ഉച്ചകോടിയിൽ പങ്കുവയ്ക്കും നവംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ വൃതിയാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഉച്ചകോടി നടത്തുന്നത്

നെയ്തലക്കാവ് ഭൃശ്വ്തീ തെക്കേ ഗോപുരനട തുറക്കുന്നത്തോടെയാണ് തൃശൂർ ്പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് കോവിഡ് മൂന്യദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് പൂരം നടക്കുന്നത്

പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം ഊർജിതമാക്കാനുളള കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയത്തെ തുടർന്നാണ് പ്രഖ്യാപനം

കെ യിലേക്കും തിരിച്ചുമുള്ള വിമാന സർവ്വീസുകൾ ശനിയാഴ്ച മുതൽ നിർത്തി വയ്ക്കാൻ തീരുമാനിച്ചതായി എയർ ഇന്തൃ അറിയിച്ചു

പുറത്തിറക്കിയ പുതിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് ഈ മാസം അവസാനം വരെയുള്ള സർവ്വീസുകൾ റദ്ദാക്കുന്നത് സർവ്വീസുകൾ പുനരാരംഭിക്കുന്നതും പണം തിരികെ നൽകുന്നതും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ പിന്നീട് ഉണ്ടാകുമെന്നും എയർ ഇന്തൃ അറിയിച്ചു

ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിന്െ നേരിടും